വൈകിട്ട് കേരളത്തിലും വിവിധ പദ്ധതികൾ നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യും

ബഹ്റിൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി

ഇരു സംസ്ഥാനങ്ങളിലേയും നിരവധി വികസന് പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത് രാവിലെ ഒഡീഷയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിരവധി പരിപാടികളിൽ സംബന്ധിച്ചു

ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തുന്ന അദ്ദേഹം കൊല്ലം ബൈപ്പാസിന്റെയും തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമിക്ഷേത്രത്തിലെ സ്വദേശി ദർശൻ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവ്വഹിക്കും വിശദാംശങ്ങളുമായി അനിൽകുമാർ

വൈകുന്നേരം തിരുവനന്തപുരം എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ വിമാന മിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് ക്ടൊല്ലത്തേയ്ക്ക് ഹെലികോ പ്റ്ററിൽ യാത്ര തിരിക്കും

്തുടർന്ന് കൊല്ലം കന്റോൺമെന്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മഹാസമ്മേളനത്തെ പ്രിയാനമന്ത്രി അഭിസംബോധന ചെയ്യും കൊല്ലത്തെ പരിപാടിക്യൾക്കുശേഷം തിരുവന്തപുരത്തെത്തുന്ന് പ്രെഡാനമന്ത്രി രാത്രി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും തുടർന്ന് സ്വദേശി ദർശൻ പദ്ധതീയുടെ കീഴിൽ പൂർത്തിയാക്കിയ നിർമാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ പ്രധാനമന്ത്രി ശിലാഫലകം അനാവരണം ചെയ്യും

പൈതൃക നടപ്പാതയുടെ നിർമാണം പത്മതീർത്ഥക്കുളത്തിന്റെ നവീകരണം വൈദ്യുതീകരണം സുരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങി യവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

വോയ്സ് ഝാർസുഗുഡയിലെ ലോജിസ്റ്റിക്സ് പാർക്കും ബലാംഗിർ ബിച്ചുപാലി റെയിൽവേ ലൈനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

തെരുവാലി സിങ്കാപ്പൂർ റോഡ് സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിച്ചു സോനാപൂരിൽ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പുതിയ മന്ദിരത്തിനും അദ്ദേഹം തറങ്കല്ലിട്ടു ബൌദ് ജില്ലയിലെ നിള മാധവ് സിദ്ദേശ്വർ ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവൃത്തിയ്ക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി ഒഡിഷയിലെ വിവിധ സ്ഥലങ്ങളിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും ഉദ്ഘാടനം ചെയ്തു പുതിയ പദ്ധതികൾ ഒഡീഷയുടെ മാത്രമല്ല ഇന്ത്യയുടെ കിഴക്കൻ മേഖലയുടെ വളർച്ചയും സാധ്യമാക്കുമെന്ന് പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

പി ബി

പി സഖ്യത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പട്നയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സീറ്റ് വിഭജന്മൂസംബന്ധിച്ച് ബീഹാറിൽ ഉടൻ ചർച്ച ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇതു സംബന്ധിച്ച ഭരണഘടന ഭേദഗതി പ്രാബല്യത്തിൽ വന്നതായി ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു ശനിയാഴ്ചയാണ് രാഷ്ട്രപതി ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചത്

രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരുടെ വീരകൃതൃത്തിൽ രാജ്യം അഭിമാനം കൊള്ളുന്നതായും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ശൈത്യകാലത്തിന്റെയും ശൈത്യകാല വിളവെടുപ്പിന്റെയും സമാപനം കൂടിയാണ് ഈ ആഘോഷം തമിഴ്നാട്ടിൽ പൊങ്കൽ ഗുജറാത്തിൽ ഉത്തരായൻ അസമിൽ ഭൊഗാലി ബിഹു പശ്ചിമ ബംഗാളിൽ പൌഷ്ട് സംക്രാന്തി എന്നീ പേരുകളിലാണ് ഈ ആഘോഷം അറിയപ്പെട്ടുന്നത് മകരസംക്രാന്തി പ്രമാണിച്ച് രാഷ്ട്രപതി രാംനാഥ് ക്ടോപ്പിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ ന്റേർന്നു

കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഐ

എം എന്നിവയുടെ സംയുക്ത പഠനങ്ങളുടെ അടിസ്ഥാന ത്തിലായിരിക്കും പ്രവചന സംവിധാനം വികസിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിന് മുന്നോടിയായി പൂനെ ഐ ഐ

ആയുഷ്മാൻ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നത്

മരവിപ്പിക്കുന്ന തണുപ്പിനെ വകവയ്ക്കാതെ ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിനായി പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്

അഖാഡകളുടെ നേതൃത്വത്തിൽ സന്യാസിമാരും നിർവ്വാണം സിദ്ധിച്ചവരും സ്നാനഘട്ടത്തിലേയ്ക്ക് ഘോഷയാത്രയായാണ് എത്തിച്ചേർന്നത്

കുംഭമേളയിൽ പങ്കെടുക്കുന്ന പ്രവാസി ഭാരതീയ ദിവ്യസ് പ്രതിനിധികൾക്കും പ്രയാഗ് രാജിൽ പ്രത്യേക സൌകരൃങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശ്രവാണി

രാജ്യത്തിന്റെ ആത്മീയ സാംസ്ക്കാരിക ദർശനങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കുംഭമേള സഹായകരമാകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ഇതോടെ വികസ്വര രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിപരമായ ഉല്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രമുഖ രാജ്യമായി ഇന്ത്യ മാറി

ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുതുക്കോട്ടെ നാഗപ്പട്ടണം രാമേശ്വരം എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുത്തത് സമുദ്രാതിർത്തി ലംഘിച്ചെന്ന് ആരോപിച്ചാണ് അറസ്റ്റ്

കരൾ രോഗബാധയെ തുടർന്ന് ഒരാഴ്ചമുമ്പാണ് ലെനിൻ രാജേന്ദ്രൻ ചികിത്സ തേടിയത്

ബക്ക റിന്റെ അസിസ്റ്റന്റായി ചലച്ചിത്ര ല്ലോകത്തെത്തിയ ലെനിൻ രാജേ ന്ദ്രൻ ഉണർത്തുപാട്ട് എന്ന സിന്രിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാ യിരുന്നു

പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ ഗാന്ധിജി അനുസ്മരണ പരിപാടി രക്തസാക്ഷ്യം സമാപന സമ്മേളനം ഉൽഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയുടെ ആമുഖവും മായലികാവകാശങ്ങളും അറിയുന്നവർ വിഭാഗീയത പറയില്ലെന്നും ഭരണഘടനയുടെ ആമുഖം അച്ചടിച്ചു വിദ്യാർത്ഥികളിലെത്തിക്കാൻ സന്നദ്ധ സംഘടനകളോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു

കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി വിമാനത്താവള അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം ചെന്നൈ ഹൈദ്രാബാദ് ഗോവ ഹൂബ്ലി ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ എയർ സർവ്വീസ് നടത്തും

എ ഇ യോട് ഏകപക്ഷീയമായ ര്ണ്ടു ഗോളുകൾക്ക് പരാജയവും ഇന്ത്യയ്ക്കുണ്ടായി